വ്യവസ്ഥയുടെ അടിത്തറ ഭദ്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പുനഃപരിശോധിക്കണമെന്ന് സൂപ്രീംകോടതി

ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കം

ന്യൂഡൽഹിയിൽ നിതി ആയോഗ് യോഗ്ത്തിൽ സാമ്പത്തിക വിദഗ്ധരും സംരംഭകരുമായി ആശ്യപ്പിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം തൊഴിലവസരങ്ങൾ പ്രർദ്ധിപ്പിക്കാനും സമ്പദ് വൃവസ്ഥ ശക്തിപ്പെടുത്താനും വിനോദ്സഞ്ചാരം നഗരവികസനം അടിസ്ഥാന സൌകര്യം കൃഷി അടിസ്ഫാനമാർക്കിയുള്ള വ്യവസായം തുടങ്ങിയവയ്ക്ക് ഏറെ സാധ്യതകളുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അഞ്ച് ട്രില്ല്യൺ ഡോളർ സമ്പദ്വൃവസ്ഥയെന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു എന്നാൽ ഈ ലക്ഷ്യം പെട്ടെന്നുള്ള സംഭവ വികാസമല്ലെന്നും ഇത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ഒരു റിപ്പോർട്ട് വോയിസ് നിരോധനങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഒരാഴ്ചയ്ക്കകം പുനഃപരിശോധിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ പ്രസിദ്ധപ്പെടുത്താനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും ഇൻർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും കോടതി ഉത്തരവിട്ടു

ഇൻർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും കോടതിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണെന്നും ജസ്സിസ് രമണ പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കുടുംബമേധാവിയുടെ മൊബൈൽ ഫോൺ നമ്പറും ശൌച്യാലയം ടിവി ഇന്റർനെറ്റ് കുടിവെള്ള സ്രോതസ്സ് ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളും എന്യൂമറേറ്റർമാർ ശേഖരിക്കും

സെൻസ്സ്ുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിനാണ് മൊബൈൽ നമ്പർ ശേഖരിക്കുന്നതെന്നും മറ്റൊരു കാര്യത്തിനും ഇത് ഉപയോഗിക്കില്ലെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു ടെലഫോൺ മൊബ്രൈൽ ഫോൺ സ്മാർട്ട് ഫോൺ സൈക്കിൾ സ്കൂട്ടർ മോട്ടോർ സൈക്കിൾ കാർ ജീപ്പ് വാൻ റേഡിയോ ട്രാൻസിസ്റ്റർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നിവ ഉണ്ടോ എന്നും രേഖപ്പെടുത്തും

രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സാമ്പത്തിക നടപടികൾ സുതാര്യമാക്കുന്നതിന്റെ സഹായ ഭാഗമായാണ് പണമായുളള സാമ്പത്തിക സഹായത്തിനു ബദലായി ഇലക്ടറൽ ബോുകൾ കൊുവന്നത്

ന്യൂഡൽഹി ചണ്ഢീഗഡ് ഷിംല ശ്രീനഗർ ഡെഹ്റാഡൂൺ ഗാന്ധിനഗർ ഭോപ്പാൽ റായ്പൂർ മുംബൈ പട്ന ലഖ്നൌ എന്നീ നഗരങ്ങളിലെ എസ് ബി ഐ ശാഖകൾ വഴിയാണ് ബോുകൾ വിതരണം ചെയ്യുക

സംഘത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് ഗവൺമെന്റ് തന്നെയാണ് സന്ദർശനം ഒരുക്കിയത് ജമ്മു കശ്മീരിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ തദ്ദേശ ഭരണകൂടം സ്വീകരിച്ച നടപടികൾ നേരിൽക്കണ്ട് മനസ്സിലാക്കുകയാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശ്യമെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു

പോലീസും ടെക്നിക്കൽ കമ്മിറ്റിയും ഉദ്യോഗസ്ഥരും ഇന്ന് അവലോകനയോഗം ചേർന്നു

നാളെ പൊളിക്കുന്ന എച്ച്

കൂടുതൽ വിവരങ്ങളുമായി സോഫിയി

യു സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാനവ വിഭവശേഷി വികസന സെക്രട്ടറി അമിത് ഖാരേ ഇന്നലെ ന്യൂഡൽഹിയിൽ ജെ

യു അദ്ധ്യാപക യൂണിയനെ പ്രതിനിധാനം ചെയ്ത് പ്രൊഫ്

ലോബിയാൽ ജെ

യു വിലെ അക്രമങ്ങൾ ഗവൺമെന്റ് സ്പോൺസർ ചെയ്തതാണെന്ന കോൺഗ്രസിന്റെ ആരോപണം ബി ജെ

ആരോപണം അടിസ്ഥാനരഹിതമാണമെന്ന് ബി ജെ പി മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലിനു കൈമാറുമെന്ന് പോലീസ് പറഞ്ഞു ക്ഷ് എസ് ഐ എസ് സംസ്ഥാന ഘടകം രൂപീകരിക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നും പോലീസ് പറഞ്ഞു

ഝാർഖണ്ഡിലെ ധൻബാദ് ജില്ലയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഗൌരി ലങ്കേഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഡാലോചനയിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി

ഡിജിറ്റൽ ലോകത്തിന്റെ സാധ്യതകൾ പ്രതിഫലിക്കുന്ന തരത്തിലാകും പുതിയ സർട്ടിഫിക്കറ്റുകളെന്ന് സി ബി എഫ് സി ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി പറഞ്ഞു സിനിമയുടെ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ പ്രവർത്തിച്ചുവരുടെ വിവരങ്ങൾ കഥാ സംഗ്രഹം ട്രെയിലർ പ്രൊമോ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ പുതിയ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തും

നടപടികൾ പൂർത്തിയായതായി ഗെയിംസ് സി

കേന്ദ്ര കായികമന്ത്രി കിരൺ റിജിജു മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ കായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും

മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം

കെട്ടിട് നിര്മാണ തൊഴിലാളികൾക്ക് പുറമേ മറ്റ് അസംഘടിത മേഖലയിലേക്ക് കൂടിയാണ് പദ്ധതി വ്യാപിപ്പിക്കുന്നത്

കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രസിഡന്റ് ട്രംപ് വിട്ടുനിൽക്കണമെന്ന് പ്രതിനിധിസഭാ സ്പീക്കർ നാൻസി പെലോസി മാധ്യമങ്ങളോട് പറഞ്ഞു

വിദേശത്ത് ഹിന്ദിയുടെ ഇന്ന് പ്രയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട്ടുയാണ് എല്ലാ വർഷവും ഹിന്ദി ദിനം ആചരിക്കുന്നത് ദിനാച്രണത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്